ജെ പി പ്രിഖ്യാപിച്ചു

ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി

ചടങ്ങിൽ പ്രധാന മന്ത്രി ദേശീയ പതാക ഉയർത്തും

ചെങ്കോട്ട യിൽ നടക്കുന്ന ചടങ്ങിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അനന്ത രവൻ ചന്ദ്രകുമാർ ബോസ് സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ തുട ങ്ങിയവർ പങ്കെടുക്കും

ന്യൂഡൽഹിയിൽ ദേശീയ പോലീസ് സ്മൃതി കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഇതോടനുബന്ധിച്ച് പ്യോലീസ് മ്യൂസിയവും പ്രധാനമന്ത്രി രാജ്യ ത്തിന് സമർപ്പിക്കും

ജെ

ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്തു ചേർന്ന ബി ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ എന്നിവരെ കൂടാതെ മറ്റ് മുതിർന്ന നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു

ജെ

മുംബൈയിൽ നിന്ന് ഗോവയിലേക്കുള്ള പ്രീമിയം പാസഞ്ചർ കപ്പൽ സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മുംബൈയ്ക്കും ഗോവയ്ക്കും ഇടയിൽ ആൻഗ്രീയ സർവീസ് നടത്തും മുംബൈയ്ക്കിലെ പുതിയ ആഭ്യന്തര ക്രൂയിസ് ടെർമിനൽ കേന്ദ്രം കേന്ദ്ര ഷിപ്പിംഗ് ഗൃതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദ്രേവ്യേന്ദ്ര ഫട്നാവിസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

ആൻഗ്രിയ ക്രൂയിസ് സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര ആഡംബര യാത്രാ കപ്പലാണ്

സിയാങ് നദിയിൽ ജലനിരപ്പ് ഉയർന്നതാണ് പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം അതേസമയം ബ്രഹ്മപുത്രയിൽ നിലവിൽ ജലനിരപ്പ് ഉയരാത്തതിനാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു അടിയന്തിര സാഹചര്യഹ നേരിടാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട് നേരത്തെ ബ്രഹ്മപുത്ര നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് അസ്സാം അരുണാചൽ ഗവൺമെന്റുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ടിബറ്റിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട് കൃത്രിമ തടാകം രൂപപ്പെട്ടുവെന്ന് ചൈന ഇന്ത്യയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്

ആർ

ഒരു സെനികന് പരിക്കേറ്റു

സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും കുറ്റക്കാരെ ഉടൻ പിടികൂടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ശ്രീലങ്ക വഴി സൌദി അറേബ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വച്ചാണ് മുഹമ്മദ് അഷറഫ് ഖൻഡേ എന്നയാളെ എൻ ഐ എയുടെ പ്രത്യേക സംഘം പിടികൂടിയത് ജൈഷ് ഈ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിൽപ്പെട്ട ആയുധധാരികളായ മൂന്ന് ഭീകരപ്രവർത്തകർക്ക് രാജ്യത്ത് നുഴഞ്ഞുകയറുന്നതിനുള്ള സഹായങ്ങൾ ഇി്യാൾ നൽകിയിരുന്നു

സിംഗപ്പൂരിൽ ആസി യാൻ രാജ്യങ്ങളിലെ രാജ്യരക്ഷാ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടു ക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി വിശദാംശങ്ങളുമായി പ്രിയ

തീവ്രവാദം ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യമെങ്കിൽ വീണ്ടും ശക്തമായ നടപടി

അമേരിക്ക ആസ്ട്രേലിയ മലേഷ്യ വിയറ്റ്നാം ഫിലിപ്പൈയിൻസ് എന്നീ രാജ് ങ്ങ ളിലെ രാജ്യരക്ഷാ മന്ത്രിമാരുമായും ശ്രീമതി നിർമ്മലാ സീതരാമൻ ഉഭ യകക്ഷി ചർച്ച നടത്തി റഷ്യ ചൈന തായ്ലന്റ് ലാവോസ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലെ രാജ്യ രക്ഷാ മന്ത്രിമാരുടെ യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു സിംഗപ്പൂർ പ്രധാനമന്ത്രി ടിയോ ചീ ഹിയാനു മായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും

ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു മറ്റൊരു മത്സ്രത്തിൽ ജപ്പാൻ ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ രണ്ട്ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാർന നേരിടും

ഇന്നലെ നടന്ന സെമിയിൽ സൈന ഇൻഡോനേ ഷ്യയുടെ മർസിക ഇൻജുങിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെ ടുത്തിയാണ് ഫൈനലിൽ കടന്നത്

അഞ്ച് മത്സരങ്ങളാണ് ഏകദീന പരമ്പരയിൽ ഉള്ളത് ഏകദിന പരമ്പരയ്ക്ക്ശേഷം മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾ നടക്കും

പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർസിംഗും മറ്റ് മന്ത്രിമാരും പരിക്കേറ്റവരെ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിച്ചു അപകടത്തെ കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു നാല് ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം

സ്ഥിതിഗതികൾ വിലയിരുത്താനും മേൽനോട്ടം വഹിക്കുവാനും മന്ത്രിതല സമിതിയും രുപീകരിച്ചു

നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം അടിച്ചു